വർദ്ധിച്ചു നിയന്ത്രണങ്ങൾ കർശനമാക്കി സംസ്ഥാന സർക്കാർ

പഞ്ചാബ് കിംങ്സ് ഇലവൻ പോരാട്ടം

സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിപുലമായ സൌകര്യങ്ങളാണ് വാക്സിനേഷനുവേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളത്

നിലവിൽ കോവീഷീൽഡ് കോവാക്സിൻ എന്നിവയാണ് രാജ്യത്ത് ഉപയോഗിച്ചു വരുന്നത് വാക്സിന്റെ പരീക്ഷണ ചുമതല ഡോ

റെഡ്നീസ് ലാബ് കരാറിലേർപ്പെട്ടു കഴിഞ്ഞു ഹൈദരാബാദിലെ ബഹുരാഷ്ട്ര ഇന്ത്യൻ ഫാർമട് കമ്പനിയാണ് ഡോ

റെഡ്റീസ് അപേക്ഷ നൽകിയത്

വൻതോതിൽ വാക്സിൻ കുത്തിവയ്പ്പ് തുടങ്ങിയതോടെ ലഭൃതക്കുറവുണ്ടെന്നും പല മേഖലയിലും രണ്ട് ് ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമാണുള്ളതെന്നും മന്ത്രി അറിയിച്ചു നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ തൃശൂർ പൂരത്തിന് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് അപകടകരമാണെന്നും മന്ത്രി പറഞ്ഞു ആറ്റുകാൽ പൊങ്കാല നടത്തിയതു പോലെ പ്രതീകാത്മകമായി തൃശൂർപൂരം നടത്താനാകുമോ എന്ന് ആലോചിക്കണമെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ചർച്ചയിലൂടെ തീരുമാനം എടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

നഗരത്തിലെ എല്ലാ ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു ചില സ്വകാര്യ സ്ർക്കാർ ആശുപത്രികളെ കോവിഡ് ചികിത്സ മാത്രം നടത്തുന്ന ആശുപത്രികളായി മാറ്റാനും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഈ സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധനകളും വാക്സിനേഷനും ഉയർത്തണമെന്ന് കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തിലൂടെ ആവശ്യപ്പെട്ടു

തീവണ്ടി യാത്രക്കാർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനും ഛത്തീസ്ഗഢ് തീരുമാ നിച്ചു

ഇംബിച്ചമ്മദ് ഹാജി അറിയിച്ചു

പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസ്ഥാനത്ത് എത്തിച്ചേർന്നു

ബർദ്ധമാനിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വസ്തുത മനസ്സിലാക്കി അവരെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ നീക്കത്തിൽ ദിവസം കഴിയുന്തോറും അവർക്ക് സംഘർഷം കൂടി വരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബംഗാൾ തൊഴിൽ ആഗ്രഹിക്കുന്നു ബംഗാൾ ബി ജെ പി ഗവൺമെന്റ് വരണം എന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു

തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നാദിയയിലെ റാണാഘട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ പത്തു വർഷത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക മമത അവതരിപ്പിച്ചു ഇപ്പോഴും പ്രവർത്തനങ്ങൾ തുടരുകയാണ്ടെന്നും അവർ പറഞ്ഞു

ജെ

ആകെ എട്ടു ി ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലും കർണ്ണാടകയിലെ ബെൽഗാമിലും ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണ് ന് നടക്കുന്നത്

കർണ്ണാടകയിൽ മുഖ്യമന്ത്രി ബി

അതേസമയം കർണ്ണാടകയിലെ മാസ്കി ബസവകല്യാൺ എന്നീ നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ശനിയാഴ്ചയാണ്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് ഇലവൻ പോരാട്ടം

മലയാളിയായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി അരങ്ങേറുന്ന മത്സരമാണ് ഇന്നത്തേത് ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തിരഞ്ഞെടുത്തു

വാട്സ് ആപ്പിലൂടെ കോവിഡ് വാക്സിനേഷന് വേണ്ടി ബുക്ക് ചെയ്യാമെന്ന വാർത്ത വ്യാജമാണെന്നും പ്പി ഐ

കഴിഞ്ഞ മൂന്നു മാസത്തിനുള്ളിൽ മാത്രം നാലു ലക്ഷം കോടി രൂപ നിക്ഷേപം ഉണ്ടായതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ടി

എസ് സേവനം ചില സാങ്കേതിക കാരണങ്ങളാൽ ഞായറാഴ്ച തടസപ്പെടുമെന്ന് റിസർവ്വ് ബാങ്ക് അറിയിച്ചു

അതേസമയം എൻ ഇ എഫ് ടി സേവനങ്ങൾ പതിവുപോലെ ലഭ്യമാകുമെന്ന് ആർ

ഐ വ്യക്തമാക്കി